ഒന്ന് മുതൽ ഏഴ് വരെ ക്സാസൂക്കളിൽ ്നടപ്പാക്കുന്ന ഹൈടെക് വിദ്യാഭ്യാസ പരിപാടിക്ക് സ്യംസ്ട്രാനത്ത് നാളെ തുടക്കമാകും

ദേശീയപാത അതോറിറ്റിയുടെ മാർഗ്ഗരേഖ മുദ്ദിക്കിയ് സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വികസനത്തിന് തടസ്സമായി നിന്ന് ഘടകങ്ങൾ മാറിയിട്ടുണ്ട്

കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇതെന്നും മന്ത്രി സുധാകരൻ നിയമസഭയിൽ പറഞ്ഞു